സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ നാലായിരം കിലോ മീറ്റർ റോഡ് തകർന്നതായി മന്ത്രി ജി സുധാകരൻ

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയെ പാർട്ടി യുടെ പ്രധാനമന്ത്രി മുഖമായി ഉയർത്തിക്കാട്ടു മെന്ന് കോൺഗ്രസ്

അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ മൈക്ക് ഡോസനെ റാപ്പിഡ് രാജയായും നൌറിയ ന്യൂമാനെ റാപ്പിഡ് റാണിയായും തെരഞ്ഞെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച്ദിവസത്തെ ആഫ്രി ക്കൻ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും

ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം മറ്റന്നാൾ ദക്ഷിണാഫ്രിക്കയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും ആഗോള വിഷയങ്ങളും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉൾപ്പെടെ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും

റോഡുകൾ നന്നാക്കാൻ സംസ്ഥാന ഫണ്ട് തികയില്ലെന്നും ഇക്കാര്യങ്ങൾ കാണിച്ച് കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറ യുകയാണുണ്ടായതെന്നും മന്ത്രി വൃക്തമാക്കി മഞ്ചേരി പൊതുമരാ മത്ത് വിശ്രമമന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ സംസ്ഥാനത്തെ എല്ലാ റസ്റ്റ്ഹൌസുകളും ഒരു മാസത്തിനുളളിൽ നവീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഗസ്റ്റ്ഹൌസുകളുടെ പേര് മാറ്റി വിശ്രമമന്ദിരങ്ങൾ എന്നാക്കുമെന്നും സുധാകരൻ പുറഞ്ഞു കാലവർഷക്കെടുതിയിൽ കൃഷിനശിച്ചവർക്ക് ഉൽപാദന നഷ്ട ത്തിന് ആനുപാതികമായി നഷ്ടപരിഹാര്യം നൽകുമെന്ന് മന്ത്രി പി തിലോത്തമൻ ആലപ്പുഴയിൽ പറഞ്ഞു കർഷകർക്ക് ഇൻഷൂ റൻസ് ആനു് കൂല്യം ലഭ്യ മാക്കാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കുട്ടനാട്ടിൽ ദുരിത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ക്ഴിഞ്ഞ രണ്ടുദിവസമായി മഴയുടെ ശക്തി കുറ ഞ്ഞെങ്കിലും ആല്പ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്

മതിയായ കുടിവെളളം ലഭിക്കുന്നില്ലെന്നും ടോയ്ലറ്റ് സൌക രൃമില്ലെന്നും ക്യാമ്പുകളിൽ പരാതി ഉയരുന്നുണ്ട് വെളളം കയറിയ തിനെ തുടർന്ന് കുട്ടനാട് പ്രദേശത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്

ജില്ല യിൽ ദുരിതാശ്വാസക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധിയായിരിക്കും

ശനിയാഴ്ച തുറന്ന ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെ രാവിലെ അടച്ചി രുന്നു

ചിറ്റൂർ പുഴ ഭാര തപ്പൂഴ എന്നിവയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെനന് അധികൃതർ മുന്നറിയിപ്പ് നൽകി മഴയ്ക്ക് അൽപം ശമനമുണ്ടായെങ്കിലും പത്തനൃംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കാലവർഷക്കെട്ടുതികൾ തുടരുന്നു

കടപ്ര നിരണം പെരിങ്ങര മേഖലകളിൽ നിരവധി വീടുകളിൽ ഇപ്പോഴും വെളളം കയറിയ നിലയിലാണ് കൊല്ലം ചവറയിൽ തിരയിൽപ്പെട്ട് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു മൂന്നുപ്പേർക്ക് പരിക്കേറ്റു

പരിക്കേറ്റവരെ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളളം പൂർണമായും തകർന്നു നീണ്ടകർ ഹാർബറിനു സമീപം അഴിമുഖത്തായിരുന്നു അപകടം തലശ്ശേരി കടവത്തൂരിനടുത്ത് പുഴയിൽ വീണ് കാണാതായ കൊല്പം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി

കഴിഞ്ഞ വ്യാഴാഴ്ച യായിരുന്നു പ്രസാദിനെ കാണാതായത് ആന്ത്രോത്ത് ദീപിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട തൊഴിലാളികളെ ഇനിയും കണ്ടെത്തിയില്ല ശനിയാഴ്ച രാവിലെ യാണ് നാല് തൊളിലാളഇകൾ ചെറിയതോണിയിൽ മത്സ്യബ ന്ധനത്തിന് പോയക്

കേരളത്തിലും ലക്ഷദ്വീപിലും മറ്റന്നാൾ വരെ കനത്തമഴ തുട രുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരുവനന്തപുരത്ത് അറി യിച്ചു

അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിയെ പാർട്ടിയുടെ പ്രധാനമന്ത്രി മുഖമായി ഉയർത്തിക്കാട്ടുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു

നെ നയിക്കു കയെന്ന് ന്യൂഡൽഹിയിൽ വിശാല കോൺഗ്രസ്ട് പ്രവർത്തകസ മിതി യോഗത്തിന് ശേഷം എഐസിസി ജന ഉസ്ക്രട്ടറി അശോക് ഗഹലോട്ടും പാർട്ടി വക്താവ് രൺദീപ് സുർജേവാലയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബിജെപിയെ നേരിടാൻ സമാനമ്നസ്കുരുമായി സഖ്യം രൂപീ കരിക്കുന്നതിന് പ്രവർത്തകസമിതി രാഹുൽഗാന്ധിയെ ചുമതല പ്പെടുത്തിയതായിയും അവർ പറഞ്ഞു മോദി ഗവ നെതിരെ പത്തിന പ്രചാരണ പരിപാടികൾക്കും യോഗം രൂപംനൽകി അതിനിടെ വാക്കിലും പ്രവ്ൃത്തിയിലും മാനൃത പാലിക്കണ മെന്ന് നേതാക്കൾക്ക് രാഹുൽഗാന്ധി നിർദ്ദേശം നൽകി നിരുത്ത രവാദ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അദ്ദേഹം പ്രവർത്തകസമിതി യോഗത്തിൽ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും മികച്ച ഭരണം കാഴ്ച വെക്കുന്ന സംസ്ഥാനമായി കേരളത്തെ വീണ്ടും തെരഞ്ഞെടുത്തു ബംഗളൂരു ആസ്ഥാനമായ പബ്ലിക് അഫയേഴ്സ് സെന്ററിന്റെ പഠനത്തിലാണ് കേരളത്തെ മികച്ച സംസ്ഥാനമായി തെരഞ്ഞെടുത്തത് പത്ത് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനങ്ങ ളിലെ ഭരണമികവ് പരിശോധിച്ചത്

ഹരിയാ നയും ഉത്തർപ്രദേശുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ

കോഴിക്കോട്ട് ആറാമത് മലബാർ റിവർഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ആദ്യ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടൂർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലാന്റിലെ മൈക്ക് ഡോസ്റ്റെന് റാപ്പിഡ് രാജ യായും ഫ്രാൻസിലെ നൌറിയ ന്യൂമാനെ റാപ്പിഡ് റാണിയുമായി തെരഞ്ഞെടുത്തു ഫെസ്റ്റിൽ നടന്ന മ്ത്സരങ്ങളിൽ ഏറ്റവും കൂടു തൽ പോയിന്റ് നേടിയാണ് ഇരുവരും പ്രാമ്പ്യന്മാരായത് അരിപ്പാറ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഇന്നലെ നടന്ന ഡൌൺറിവർ പുരുഷന്മാരുടെ ഫൈനലിൽ ന്യൂസിലാന്റിലെ മൈക്ക് ഡോസൻ ജേതാവായി ജർമനിയുടെ അഡ്രിയാൻ മറ്റേൺ രണ്ടാംസ്ഥാനവും അമേരിക്കയുടെ ഡെയ്ൻ ജാക്സൺ മൂന്നാം സ്ഥാനവും നേടി

നെത്ർലാന്റ് സിന്റെ മാർട്ടിന വെഗ്മാൻ രണ്ടാമതെത്തി

താരങ്ങൾക്ക് സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു സ്ഥലം ഉറപ്പായാൽ കയാക്കിംഗ് മത്സരത്തിനാവശ്യമായ അന്താ രാഷ്ട്ര സെന്റർ ഒരുക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു

ബെയ്ച്ചുഗ് ബൂട്ടിയക്ക് ശേഷം നൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ഇന്ത്യൻതാരമാണ് ഛേത്രി കമലാദേവി യാണ് വനിതാ ഫുട്ബോളർ ഓഫ് ദി ഇയർ ഗ്രാസ്റൂട്ട് ഡെവലപ്മെന്റിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേ ഷന്റെ പുരസ്കാരം കേരള ഫുട്ബോൾ അസോസിയേഷൻ സ്വന്ത മാക്കി ഇന്തൃയുടെ ലക്ഷ്യസെൻ ഏഷ്യൻ ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യനായി ജക്കാർത്തയിൽ നടന്ന ഫൈനലിൽ ലോക ജൂനിയർ ചാമ്പ്യൻ ഇന്റോനേഷ്യയുടെ കൂൻലാവുത്ത് വിറ്റിത്സാനെ പരാജ യപ്പെടുത്തിയാണ് ലക്ഷ്യസെൻ ചാമ്പ്യനായത്

സംസ്ഥാന പൊലീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് ഇന്ന് ആരംഭിക്കും

സംസ്ഥാനത്തെ എല്ലാസർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരുടെ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും സർവക ലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ജസ്റ്റിസ് പി സദാ ശിവം അധ്യക്ഷനാകും

മുൻ പാക്ക് പ്രസിഡന്റ് പർവ്വേസ് മുഷറഫിന്റെ ജീവിതം പ്രമേയമാക്കിയ ഇൻഷാ അള്ള ഡെമോക്രസി ദളിതർ നേരി ടുന്ന ദൂരിതങ്ങൾ അനാവരണം ചെയ്യുന്ന ആനന്ദ്പട്വർധന്റെ ജയ് ഭീം കോമ്രേഡ് എന്നിവ ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങളാണ് ഗ്രാമീണ ആരോഗൃ പരിപാലനത്തിന് സംസ്ഥാന ഗവ കൂടുതൽ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പളളി പറ ഞ്ഞു

മത്സൃകർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം മത്സൃതീറ്റയുടെ വിലവർധനയാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിഅമ്മ പറഞ്ഞു വിഷരഹിത മത്സൃവിപണനശൃംഖല കൊച്ചി ചേരാനെല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മത്സ്യ തീറ്റയുടെ വില വർധനക്ക് പരിഹാരം കാണാൻ പ്രവർത്തനങ്ങൾ ഗവ ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു വർഗീയതക്കെതിരെ ബദൽശക്തി രൂപപ്പെട്ടണമെന്ന് സിപി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു

സിപ്പിഐ നേതാക്കളായ എൻ ഇ ബാലറാം പിപി മുകുന്ദൻ എന്നിവരുടെ അനുസ്മരണ പരിപാടി കണ്ണൂർ ചക്കരക്കല്ലിൽ ഉദ്ഘാട്ടനം ചെയ്യുകയായിരുന്നു കാനം ലോറി സമരം നാലാം ദിവസ്ത്തേക്ക് കടന്നതോടെ സംസ്ഥാ നത്തെ ചരക്ക് നീക്കം പ്രതിസന്ധിയിലായി ഇതര സംസ്ഥാന ങ്ങളിൽ നിന്ന് ചരക്കുമായി എത്തുന്ന ലോറികളുടെ എണ്ണം ഗണ്യ മായി കുറഞ്ഞതായാണ് റിപ്പോർട്ട് തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി വന്ന ലോറിക്ക് നേരെ വാളയാറിലുണ്ടായ കല്ലേറിൽ ക്ലീനർ മരിച്ചു തമിഴ്നാട് സ്വദേശി ബാഷയാണ് മരിച്ചത് ഇന്നലെ അർധരാത്രി വാളയാറിൽ ജില്ലാ അതിർത്തി കടക്കുമ്പോഴായിരുന്നു സംഭവം കല്ലെറിഞ്ഞവരെ കണ്ടെത്താനായില്ല പൊലീസ് കേസെടുത്ത് അന്വേഷണം ആരം ഭിച്ചു പാലക്കാട് മങ്കര പഞ്ചായത്ത്പ്രസിഡന്റ് എസ് ജിംസിക്കെ തിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അപവാദപ്രചരണങ്ങൾ നട ത്തിയ രണ്ടുപേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു

വൃക്തിഹത്യ നടത്തിയതിനെ തുടർന്ന് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും എടിഎം തട്ടിപ്പുകൾ നട ക്കുന്നതിനാൽ ഒടിപി നമ്പർ ആർക്കും കൈമാറരുതെന്ന് സിറ്റി പൊലീസ് മുന്നറിയിപ്പ് നൽകി